ത തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഹോട്ടലുകളിലും റസ്റ്റോറന്റുകളിലും അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും അനുമതി

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് തകർപ്പൻ ജയം വാർത്തകൾ വിശദമായി കോവിഡ് വ്യാപനം രൂക്ഷമായ ഏഴ് സംസ്ഥാനങ്ങളിലേയും കേന്ദ്ര ഭരണ പ്രദേശത്തെയും സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി വിളിച്ച നരേന്ദ്രമോദി ഉന്നതതല ഇന്ന്

രാമ തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രേര രോഗം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ആൾക്കൂട്ടം സൃഷ്ടിച്ച് കോവിഡ് പ്രതിരോധത്തെ തകിടം മറിക്കരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആൾക്കൂട്ടമുണ്ടാക്കി കുറെ നാളുകളായി നടത്തുന്ന സമരങ്ങളെ ഈ സാഹചര്യത്തിൽ വേണം നോക്കിക്കാണാൻ

കോവിഡിനൊപ്പം ജീവിക്കേണ്ട ഈ ഘട്ടത്തിൽ രോഗ വ്യാപനം പിടിച്ചു നിർത്താൻ സഹായകമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്

എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തതോടെ പെരുമാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രുമ സംസ്ഥാനത്ത് കോവിഡ് രോഗമുക്തരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു

പ്രതിദിന രോഗ ബാധിതരുടെ എണ്ണം വീണ്ടും നാലായിരത്തിന് മുകളിലായി

കോഴിക്കോട് തൃശൂർ കൊല്ലം ജില്ലകളിൽ ഇന്നലെ മുന്നൂറിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പാലക്കാട് പത്തനംതിട്ട ജില്ലകളിൽ ഇരുന്നൂറിലേറെയും കാസർകോട് കോട്ടയം കണ്ണൂർ ജില്ലകളിൽ നൂറിലേറെയുമാണ് രോഗികൾ നൂറിൽ താഴെ രോഗികൾ വയനാട് ഇടുക്കി ജില്ലകളിലാണ് രുമ കൊല്ലം ജില്ലയിൽ കൊവിഡ് ബാധിച്ച് വീടുകളിൽ ചികിത്സയിൽ കഴിഞ്ഞവരുടെ എണ്ണം ആയിരം കടന്നു

രുമ കോവിഡ് കാലത്ത് വീടുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വിജ്ഞാനവും വിനോദവും ലക്ഷ്യമാക്കി ജില്ലാ ഭരണ കൂടവും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംയുക്തമായി തയ്യാറാക്കിയ ടേക്ക് ഓഫ് പദ്ധതിക്ക് വയനാട്ടിൽ ഇന്ന് തുടക്കം കുട്ടികൾക്ക് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപെടുന്ന പ്രമുഖ വ്യക്തികളുമായി ഇനി ഓൺലൈനിൽ സംവദിക്കാം രുര ലോകത്ത് കോവിഡ് ബാധിതർ മൂന്ന് കോടി പതിനേഴര ലക്ഷം കടന്നു

കോവിഡ് വ്യാപനം രൂക്ഷമായ അമേരിക്കയിൽ മരണസംംഖ്യ രണ്ട് ലക്ഷം കടന്നു

രേര സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇന്നുമുതൽ എല്ലാ ജീവനക്കാരും ജോലിക്ക് ഹാജരാകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിറക്കി

ഏഴു ദിവസങ്ങൾക്ക് ശേഷം കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവായാൽ അടുത്ത ഏഴു ദിവസം ക്വാറന്റീനിൽ പോകണമെന്ന് നിർബന്ധമില്ല

കോവിഡ് പരിശോധന നടത്താത്തവർ ശേഷിക്കുന്ന ഏഴു ദിവസം കൂടി ക്വാറന്റീനിൽ തുടരണമെന്നും നിർദേശിച്ചിട്ടുണ്ട് ഹോട്ടലുകളിലും റസ്റ്റോറന്റുകളിലും അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്

രുദ തൊഴിലാളികളുടെ നില മെച്ചപ്പെടുത്താനും ജോലി സ്ഥലത്ത് അവരുടെ താൽപര്യം സംരക്ഷിക്കാനും ലക്ഷ്യമിടുന്ന മൂന്ന് ബില്ലുകൾ ലോക്സഭ പാസാക്കി തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ വ്യവസായ ബന്ധം തൊഴിൽ സുരക്ഷ ആരോഗ്യം തൊഴിൽ സാഹചര്യം എന്നിവ സംബന്ധിച്ച ബില്ലുകളാണ് സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത് രാജ്യത്തെ തൊഴിലാളികളുടേയും തൊഴിലുടമകളുടേയും ബാധ്യതകളും അവകാശങ്ങളും താൽപര്യങ്ങളും സന്തുലിതമായി സംരക്ഷിക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് തൊഴിൽ ചട്ടങ്ങൾ കൊണ്ടുവന്നതെന്ന് തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗ്യാങ് വാർ ലോക്സഭയിൽ പറഞ്ഞു

എൻപ്രതാപൻ നൽകിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം

ഇതിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും തിരുവനന്തപുരം ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടൂം സംസ്ഥാന വ്യാവസായിക വികസന കോർപ്പറേഷനും സംയുക്തമായാണ് വൈദ്യ ശാസ്ത്ര ഉപകരണ വ്യവസായ മേഖലയിലെ നിരവധി ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്കിൽ മെഡ്സ് പാർക്ക് സ്ഥാപിക്കുന്നത് വൈദ്യശാസ്ത്ര ഉപകരണങ്ങളുടെ ഗവേഷണം വികസനം അവയുടെ പരിശോധന വിലയിരുത്തൽ നിർമ്മാണ സഹായം പുത്തൻ സാങ്കേതികവിദ്യകൾ തുടങ്ങിയവയിൽ മെഡിക്കൽ ഡിവൈസസ് പാർക്ക് പിന്തുണ ഉറപ്പാക്കും

വ്യവസായ വാണിജ്യ സംരംഭങ്ങൾക്ക് ആധുനിക അടിസ്ഥാന സൌകര്യങ്ങളുള്ള കേന്ദ്രമായി ഗിഫ്റ്റിലൂടെ കൊച്ചി മാറും ഒരു ലക്ഷത്തിലധികം പേർക്ക് നേരിട്ടും മൂന്നര ലക്ഷത്തിലധികം പേർക്ക് പരോക്ഷമായും ഗിഫ്റ്റിലൂടെ തൊഴിൽ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കേരള സിറാമിക്സ് ഫാക്ടറിയുടെ കൊല്ലം കുണ്ടറ ഡിവിഷനിൽ നവീകരിച്ച പ്ലാന്റിന്റെയും പ്രകൃതി വാതക പ്പാന്റിന്റെയും ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

മെഡിക്കൽ കോളജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രേര തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധി തൊഴിലാളികൾ തിരിച്ചറിയണമെന്ന് മന്ത്രി ജെ

ദേഴ പൊതുജനങ്ങൾക്ക് ഏറെ സഹായകമാകുന്ന എനിവേർ രജിസ്ട്രേഷൻ ഏതാനും മാസങ്ങൾക്കകം നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി എ

കോഴിക്കോട് ചേളന്നൂർ സബ്രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും ആധാരം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണിത്

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് തകർപ്പൻജയം

ഇന്ന് കൊൽക്കത്ത് നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നിർവഹണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ കോർപറേഷൻ സംഘവും പൊതുമരാമത്ത് അധികൃതരും തുരങ്കപാത പദ്ധതി തുടങ്ങുന്ന മറിപ്പുഴയിലെത്തി സാധ്യതകൾ വിലയിരുത്തി

രുമ നിയമസഭയിലെ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്ന പിണറായി ഗവൺമെന്റിന്റെ ആവശ്യം കോടതി തള്ളിയത് ഗവൺമെന്റിന്റെ ദുർവിനിയോഗത്തിനേറ്റ അധികാര തിരിച്ചടിയാണെന്ന് ബി ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ

എം കോടതിയുടെ നിലപാട് ഇടതു ഗവൺമെന്റിന്റെ മുഖത്തേറ്റ പ്രഹരമാണെന്നും അദ്ദേഹം തിരുവന്തപുരത്ത് പറഞ്ഞു രമ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു